അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി

തുടങ്ങുമെന്ന് കേന്ദ്ര ഗവിൺമെന്റ്

നടത്തിയ ആക്രമണത്തിൽ നാല് മരണം

വെങ്കലവും നേടി

ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ സമാധനപരവും ഐശ്വര്യപൂർണവുമായ നിലനിൽപ്പ് ആണ് ഉച്ചകോടിയുടെ ചർച്ചാ വിഷയം പ്രശസ്തമായ പശുപതിനാഥ് ക്ഷേത്ര സമുച്ചയത്തിലെ നേപ്പാൾ ഭാരത് മൈത്രി പശുപതി ധർമ്മശാലയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

വിമാനങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് കോൺഗ്രസ് ഉയർത്തൂന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നുപോലും ശരിയല്ലെന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി ആവർത്തിച്ചു വിമാനവിലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തന്നെ പിപിധ അവസരങ്ങളിൽ വൃതൃസ്ത കാരൃങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കോൺഗ്രസുകാർ കരുതരുതെന്നും ജയ്റ്റ്ലി പറഞ്ഞു ഫ്രാൻസുമായുള്ള കരാറിന്റെ എല്ലാ വശങ്ങളും വെളിപ്പെടുത്താനാകില്ല കരാറിൽ രഹസ്യമായി സൂക്ഷിക്കേ കാര്യങ്ങൾ പുറത്തു പറയുന്നത് കരാറിനു വിരുദ്ധമാണ്

ഇതിൽ സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ ഇടപെട്ടിട്ടില്ല

എ ഗവൺമെന്റ് ഈ കരാർ ഒരു ദശാബ്ദം വച്ച് താമസിപ്പിക്കുകയായിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സേവിംഗ്സ് കറന്റ് അക്കൌ ുകൾ പണം കൈമാറ്റം സ്ഥാപനങ്ങളുടെയും ്കച്ചവടക്കാരുടെയും പണവിനിമയം എന്നിവ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുകളുടെ പ്രവർത്തനങ്ങളിൽ ഉയർത്തിക്കാട്ടേ താണെന്നും മന്ത്രി പറഞ്ഞു ഡിസംബറോട് കൂടി ഗ്രാമീണ മേഖലകളിൽ വീട്ടുപടിക്കൽ ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുന്നതിനാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിലൂടെ ശ്രമിക്കുന്നത് നിലവിൽ പതിനേഴ് ലക്ഷം പോസ്റ്റൽ സേവിംഗ് അക്കൌ ുകളു ് ഈ അക്കൌ ് ഉടമകൾക്ക് ഇന്ത്യ പോസ്റ് പേയ്മെന്റ് ബാങ്കുകളിൽ നിന്നുള്ള ഗുണഫലം ലഭ്യമാക്കുന്നതിന് ശ്രമിച്ചു വരികയാണ് ന്യൂഡൽഹിയിൽ സെപ്തംബർ ഒന്നിന് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുകളുടെ ഉദ്ഘാടനം നടക്കും

ഗുരുതരമായി പരിക്കേറ്റ ര ് പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി ഇന്ന് ഉച്ചുയ്ക്ക് ശേഷം അരഹമയിൽ പോലീസ് വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് ആക്രമണം ഉ ായത് ഷോപ്പിയാനിലെ ഡി എസ് പി ആസ്ഥാനത്തെ എസ്കോർട്ട് സംഘത്തിന് നേരെയാണ് ആക്രമണം ഉ ായത്

ആക്രമണകാരികളെ ക്ക ത്താൻ പോലീസ് മേഖല മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്

ഓരോ സാമ്പത്തിക വർഷം അവസാനവും പ്രവർത്തന ലാഭത്തിന്റെ അധികതുക റിസർവ് ബാങ്ക് ഗവൺമെന്റിന് കൈമാറും വിദേശ നിക്ഷേപം വായ്പകൾ മുൻകൂർ പണം നൽകുക എന്നിവ വഴിയാണ് ആസ്തി മൂല്യം വർദ്ധിച്ചതെന്ന് റിസർവ് ബാങ്ക് വൃത്തങ്ങൾ വെളിപ്പെടുത്തി

ഭീമ കൊറെഗാവ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിനിടെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടികൾ ഉ ായിട്ടുള്ളത് പോലീസ് അവരുടെ ജോലി ചെയ്യുകയാണ് ഇതിനിടെ ഉ ാകുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്

ഇതിനായി ലഭിക്കുന്ന പണം പ്രത്യേക അക്കൌ ിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു പ്രളയ ദുരിതാശ്വാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ പണം കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനം വേണമെന്നും ഇതിന് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പരൃ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി സ്വകാര്യ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും പണം പിരിക്കുന്നത് ഓഡിറ്റ് ചെയ്യണം ഗവൺമെന്റ് നടപടികൾ സുതാര്യമായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

ടെബിൾ ടെന്നീസിൽ അചന്ത ശരത് കമലും മണിക ബെത്രയും ഡബ്ബിൾസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ജോഡിയായി ചരിത്രം സൃഷ്ടിച്ചു

സ്കാഷിൽ പുരുഷ വനിതാ ടീമുകൾ സെമീഫൈനലിലേക്ക് യോഗ്യത നേടി ര മെഡലുകൾ ഉറപ്പിച്ചിട്ടു ്

നിലവിൽ ഏഴ് ശതമാനമാണ് ക്ഷാമബത്ത

ആഗസ്റ്റ് മാസത്തിലെ ഫ്രിയ്പ്പാ തിരിച്ചടവ് വൈകിയാൽ ഈടാക്കുന്ന പിഴ ഒഴിവാക്കും

റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറിതല സമിതി പൊതു സമൂഹത്തിലെ അനുബന്ധ കക്ഷികളുമായി ഇതു സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനായി നിയോഗിച്ച മന്ത്രിതല സമിതിക്ക് നേതൃത്വം നല്കുന്നത് ശ്രീ രാജ്നാഥ് സിംഗാണ്

എച്ച് ന്റെ മൂന്നാമത് പതിപ്പ് ന്യൂഡൽഹിയിൽ കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക വിദ്യാർത്ഥികൾക്ക് പുതുമയുള്ള പരിഹാരം ക ത്തുന്നതിനായി പ്രശ്നങ്ങൾ നിരന്തരം അവതരിപ്പിക്കുന്ന മത്സരമാണ് എസ് ഐ എച്ച്